അരൂരിൽ കനത്ത പോളിംഗ് എറണാകുളത്ത് പോളിംഗ് മന്ദഗ്തിയിൽ

നിരവധി ട്രയിൻ സർവീസുകൾ റദ്ദാക്കി റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക തകരുന്നു

കനത്തമഴ മൂലം എറണാകുളം ജില്ലയിൽ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് അരൂരിലാണ് കനത്ത പോളിംഗ്

ഏതാനും ബൂത്തുകളിൽ വെള്ളം കയറി അല്പസമയം വോട്ടിംഗ് തടസ്സ പ്പെട്ടു ചിലയിടങ്ങളിൽ ബൂത്തുകൾ മാറ്റി സ്ഥാപിച്ചാണ് പോളിംഗ് തുടർന്നത് വെള്ളക്കെട്ടും ഗതാഗതകുരുക്കുംമൂലം വോട്ടർമാർക്ക് ബൂത്തുകളിലെത്താൻ കഴിയാത്തതാണ് വോട്ടെടുപ്പ് മന്ദഗതിയി ലാവാൻ കാരണം

ചുരുക്കം ചിലയിടങ്ങളിൽ യന്ത്രത്തകരാറിനെ തുടർന്നും പോളിംഗ് തടസ്സപ്പെട്ടു

എന്നാൽ ഉച്ചയോടെ പൊതുവെ മഴ കുറയുകയും വെള്ളക്കെട്ടുകൾ ഇറങ്ങുകയും ചെയ്തതോടെ വോട്ടെടുപ്പ് സജീവമായിട്ടുണ്ട് മഴയെത്തുടർന്ന് ഒരിടത്തും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു എറണാകുളത്ത് സാഹചര്യം കുറച്ച് മോശമാണെങ്കിലും നിലവിൽ തെരഞ്ഞെടുപ്പ് മാറ്റേണ്ട സ്ഥിതി യിലെത്തിയിട്ടില്ല

എറണാകുളം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും ടിക്കാറാം മീണ പറഞ്ഞു ഒരുനിലയ്ക്കും വോട്ടെടുപ്പ് നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായാൽ മാത്രമെ അവസാന മാർഗ്ഗമെന്ന് നിലയിൽ വോട്ടെ ടുപ്പ് മാറ്റിവെക്കാൻ സാധിക്കുകയുള്ളൂ

തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിന്റെ ഉത്സവമായി കണ്ട് പര മാവധി ആളുകളും വോട്ടു ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭ്യർത്ഥിച്ചു ചെറുപ്പക്കാർ വൻതോതിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായി തുടരുന്നു തിരുവന് ന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിൽ വ്യാപകമായി കനത്ത മഴ പെയ്യുന്നുണ്ട്

വയനാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മഴ യുണ്ടെങ്കിലും ഒരിടത്തും കാര്യമായ പ്രശ്നങ്ങളില്ല

ഉച്ചകഴിഞ്ഞും കനത്ത മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീ ക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോ കെ സന്തോഷ് തിരുവനന്തപു രത്ത് അറിയിച്ചു അറബിക്കടലിൽ രൂപപ്പെട്ട് ന്യൂനമർദ്ദം ചുഴലി ക്കാറ്റായി മാറാൻ സാധൃതയുണ്ട്

തിരുവനന്തപുരം ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്ക ടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദവും കേർളത്തിൽ വരുന്ന അഞ്ചോ ആറോ ദിവസങ്ങളിൽ കനത്തമഴയ്ക്ക് ഇടയാക്കുമെന്നാണ് വില യിരുത്തൽ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാലാവസ്ഥാ സാഹചര്യം വിലയിരുത്തും കൊച്ചിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് വൻ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു സൌത്ത് റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് എം ജി റോഡ് കലൂർ ബസ് സ്റ്റാന്റ് സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ വെള്ളം കയറി അഞ്ച് ദുരി താശ്ചാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നു എറണാകുളം നോർത്ത് സൌത്ത് സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതിനാൽ ട്രയിൻ ഗതാഗതം മണിക്കൂറു കളോളം സ് തംഭിച്ചു പിറവം വൈക്കം ഭാഗത്ത് റെയിൽപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ട്രെയിനുകൾ ഓടുന്നില്ല ദീർഘദൂര ട്രയിനുകളെല്ലാം രണ്ട് മണിക്കൂറിലേറെ വൈകിയാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ മുഴുവൻ പാസഞ്ചർ ട്രയിനുകളും റദ്ദാക്കി

തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക് സ്പ്രസ് ആലപ്പുഴയിൽ സർവീസ് അവസാനിപ്പിച്ചു തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് എറണാകുളം നോർത്ത് വഴി തിരിച്ചു വിട്ടു എറണാകുളം ആലപ്പുഴ പാസഞ്ചറും റദ്ദാക്കി കൊല്ലം എറണാകുളം പാസഞ്ചർ തൃപ്പൂണിത്തുറയിൽ സർവീസ് അവസാനിപ്പിച്ചു എറണാകുളം പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം ജില്ല കളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരു ന്നു തൃശൂർ ജില്ലയിൽ ഉച്ച കഴിഞ്ഞ് എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

തീരമേഖലയിൽ ആവശ്യമായ സുരക്ഷാനടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ട കോട്ടയം ജില്ലയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും മൂവാറ്റുപുഴയാറ്റിലും ജലനിരപ്പ് ഉയർന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിത്തുടങ്ങി റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ ഗതാഗതവും തടസപ്പെട്ടു ശക്തമായ മഴ കൊല്ലം ജില്ലയുടെ കിഴക്കൻ ് മേഖലയിൽ വ്യാപകമായി വെള്ളക്കെട്ടിനിടയാക്കി പുനലൂർ പത്തനാപുരം കൊട്ടാരക്കര പുലമൺ എന്നീ പുപ്പദ്ദേശങ്ങളിലാണ് മഴക്കെടുതികൾ രൂക്ഷമായത് ഈ പ്രദേശത്തെ തോടുകൾ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി ഗാന്ധിജിയെ ചരിത്രത്തിൽ നിന്ന് തമസ്ക്കാരിക്കുന്ന ശ്രമങ്ങൾക്ക് കേരളത്തിൽ ഇടമുണ്ടാവിലെന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ മഹാത്മാഗാന്ധി രക്തസാക്ഷ്യം സ് മൃതി മണ്ഡപത്തിന് തറക്കല്ലിടുകയായിരുന്നു മുഖ്യമന്ത്രി നവോഥാന പുരോഗതിയെ പിന്നോട്ടടിക്കാൻ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ പൊലീസ് സ്മൃതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സേനാംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അഭി വാദ്യം ചെയ്തു ജോലിക്കിടയിൽ രക്തസാക്ഷികളായ സേനാം ഗങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു പൊലീസ് ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയോടെയാണ് കടമ കൾ നിർവഹിക്കുന്നതെന്നും അത് സമൂഹത്തിന് പ്രചോദനമാ കുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

കേരള വികസനം മൂന്നാം ഘട്ടത്തിലാണെന്നും വികസന കാര്യത്തിൽ നാടിന്റെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

റാഞ്ചിയിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ക്രിക്കറ്റ് ട്ട്സറ്റിന്റെ മൂന്നാം ദിനമായു ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയുടെ നില പരുങ്ങലിൽ

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു എഫ് സി നോർത്ത് ഇൌസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും ബംഗളൂരുവിലെ ശ്രീകണ്ഠിരവ സ്റ്റേഡിയത്തിൽ വൈകീട്ട് ഏഴരക്കാണ് മത്സരം ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കൊൽക്കത്ത എടി കെയെ പരാജയപ്പെടുത്തിയിരുന്നു

ഗർഭാശയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിൽ കൂടി വരുന്നതായി കണ്ണൂരിൽ നടന്ന ആയുർവേദ സെമിനാർ അഭിപ്രാ യപ്പെട്ടു

വനാതിർത്തിയിൽ താമസിക്കുന്ന റാത്തപ്പിള്ളിൽ ജോണി ബേബി എന്നിവരുടെ വീടുകളിലാണ് ശനിയാഴ്ച രാത്രി സംഘമെത്തിയത്

കോഴിക്കോട് കല്ലായ് ഗവ ഗണപത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ഇന്ന് ഉച്ചക്ക് ശേഷം നടക്കേണ്ടിയിരുന്ന ജില്ലാ എഫ് ഡിവിഷൻ മത്സരങ്ങളും മാറ്റിയി ട്ടുണ്ട്

സർവകലാശാല മാർക്ക്ദാന വിവാദത്തിൽ മന്ത്രി കെ

ജലീലിനെ മാറ്റിനിർത്തി ഗവൺമെന്റ് ജൂഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ

സംസ്ഥാന പ്രസിഡന്റ് കെ

അഭിജിത് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് എം

സർവകലാശാലയിലേക്ക് ഇന്ന് കെ

അബ്ദുൽഗഫൂറിനേയും ജനറൽ സെക്രട്ടറിയായി കെ ഗോപാലകൃഷ്ണനേയും മഞ്ചേരിയിൽ ചേർന്ന വാർഷിക സമ്മേളനം തെരഞ്ഞെടുത്തു